ഖബറടക്കം വൈകീട്ട് ആലമ്പാടി ജുമാമസ്ജിദ് ഖബർസ്ഥാനിൽ

ഇന്നലെ വൈകീട്ട് രാവണന്റെ കോലം കത്തിക്കുന്നതിനിട യിൽ അത് കാണാനായി റെയിൽപ്പാളത്തിൽ നിന്നിവരുടെ ദേഹ ത്താണ് ജലന്ധറിൽ നിന്ന് അമൃത്സറിലേക്ക് വരുകയായിരുന്ന ട്രെയിൻ പാഞ്ഞു കയറിയത്

അതിനിടെ ട്രാക്കിനടുത്ത് ദസറ് ആഘോഷം സംഘടിപ്പി ക്കുന്നതിനെ കുറിച്ച് അറിയിച്ചിരുന്നില്ലെന്ന് റെയിൽവെ ബോർഡ് ചെയർമാൻ അശ്വിനി ലോഹാനി ന്യൂഡൽഹിയിൽ പറഞ്ഞു

ലെവൽക്രോസില്ലാത്ത സ്ഥലത്തായിരുന്നു അപകട മെന്നും അദ്ദേഹം പറഞ്ഞു

രാവിലെ അന്തരിച്ച മഞ്ചേശ്വരം എം എൽ എ പി ബി അബ്ദുൾ റസാഖിന് സമൂഹത്തിന്റെ നാനാതുറകളിൽപ്പെ ട്ടവർ മഞ്ചേശ്വരം ലീഗ് ഓഫീസിലെത്തി അന്തിമോചാരമർപ്പിക്കു കയാണ് പനി ബാധിച്ചതിനെ തുടർന്ന് മൂന്നു ദിവ സ മായി കാസർക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായി രുന്ന അബ്ദുൾ റസാഖിന് ശ്വാസകോശത്തിലുണ്ടായ അണുബാ ധയായിരുന്നു മരണകാരണം

രണ്ടുതവണ മഞ്ചേശ്വരം മണ്ഡലത്തിന്റെ പ്രതിനിധിയായി നിയമസഭയിലെത്തിയ അദ്ദേഹം ചെങ്കള പഞ്ചായത്ത് പ്രസി ഡണ്ട് കാസർക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡണ്ട് എന്നീ ചുമ തലകളും വഹിച്ചിട്ടുണ്ട്

കള്ള വോട്ട് നടന്നെന്ന ആരോപണമുയർത്തി ഈ തിരഞ്ഞെടുപ്പിലെ അദ്ദേഹത്തിന്റെ വിജയത്തിൽ ഹൈക്കോടതിയിൽ കേസ് നില വിലുണ്ട് മുസ്ലീം ലീഗ് ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗം കാസർക്കോട് സംയുക്ത ജുമാഅത്ത് ആക്ടിംഗ് പ്രസിഡണ്ട് ആലമ്പാടി നൂറുൽ യത്തീംഖാന വൈസ് പ്രസിഡണ്ട് എന്നീ സ്ഥാനങ്ങളിലും പി ബി റസാഖ് പ്രവർത്തിച്ചിട്ടുണ്ട് ലീഗ് ഓഫീസിൽ ഒന്നര വരെ പൊതുദർശനത്തിന് വച്ച ശേഷം വൈകീട്ട് ആറിന് ആലമ്പാടി ജുമാമസ്ജിദ് ഖബർസ്ഥാ നിൽ ഔദ്യോഗിക ബഹുമതികളോടെ ഖബറടക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻമുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല പാണ ക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി എം പി മന്ത്രി ഇ ചന്ദ്രശേഖരൻ തുടങ്ങിയവർ നിര്യാണത്തിൽ അനുശോചനമറിയിച്ചു അബ്ദുൾ റസാഖിന്റെ മരണം മുസ്ലീം ലീഗിനും കേരള ജന തയ്ക്കും കനത്ത ആഘാതമാണ് ഉണ്ടാക്കിയതെന്ന് മുസ്ലീം ലീഗ് സംസ്ഥാന പ്രസിഡണ്ട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ പറഞ്ഞു ഏത് സാധാരണക്കാരനും ഏത് സമയത്തും സമീപി ക്കാവുന്ന മാതൃകാ പൊതുപ്രവർത്തകനായിരുന്നു അദ്ദേഹ മെന്നും ശിഹാബ് തങ്ങൾ ന്യൂഡൽഹിയിൽ അനുസ്മരിച്ചു

ജനങ്ങൾക്കു വേണ്ടി നിലകൊണ്ട നേതാവായി രുന്നു അബ്ദുൾ റസാഖെന്ന് പ്രതിപക്ഷനേതാവ് രമേഷ് ചെന്നി ത്തല പറഞ്ഞു പി കെ കുഞ്ഞാലിക്കുട്ടി എം പിയും കെ എൻ എ ഖാദർ എം എൽഎയും അനുശോചിച്ചു പ്രളയം നേരിട്ട സംസ്ഥാനത്തിന്റെ പുനർ നിർമാണത്തിന് സഹായം തേടാൻ സംസ്ഥാന മന്ത്രിമാരെ വിദേശത്തേക്ക് അയ ക്കുന്ന കാരൃത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദൃം അനു കൂലമായി പ്രതികരിച്ചിരുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജ യൻ ഫെയ്സ്ബുക്കിൽ കുറിച്ചു എന്നാൽ പിന്നീട് യാത്രക്ക് കേന്ദ്രാനുമതി നിഷേധിച്ചതിന്റെ കാരണം അറിയില്ലെന്നും പിണ റായി അറിയിച്ചു

പ്രവാസി മലയാളികളിൽ നിന്നും സന്നദ്ധ സംഘടനകളിൽ നിന്നും സഹായം സ്വരൂപിക്കാനും അദ്ദേഹം വാക്കാൽ അനുമതി നൽകിയിരുന്നു

കേരളം ആരുടെയും മുന്നിൽ തോൽക്കാൻ തയ്യാറല്ലെന്നും നവകേരള സൃഷ്ടി ആർക്കും തടയാനാവില്ലെന്നും പിണറായി കുറിപ്പിൽ വ്യക്തമാക്കി ശബരിമലയിൽ യുവതിയെന്ന് സംശയിച്ച് ഭക്തയെ പ്രതിഷേ ധക്കാർ തടയാൻ ശ്രമിച്ചു കുടുംബത്തിനൊടൊപ്പം ദർശനത്തിന് എത്തിയ തിരിച്ചിറപ്പള്ളി സ്വദേശി ലതയെ യുവതിയെന്ന് സംശ യിച്ച് ഭക്തജനങ്ങൾ തടയുകയായിരുന്നു

തുടർന്ന് പൊലീസ് എത്തി അവർക്കു ചുറ്റും വലയം തീർത്തു

ശബരിമലയിൽ സ്ത്രീകൾ വന്നാൽ നടയടക്കുമെന്ന തന്ത്രി യുടെ സമീപനത്തോട് യോജിക്കാനാവില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം കെ പി ശങ്കരദാസ് വൃക്തമാക്കി പരികർമികളുടെ പ്രതിഷേധം ക്ഷേത്രത്തിന് കളങ്കം വരുത്തി യെന്നും അദ്ദേഹം ഒരു വാർത്താ ചാനലിനോട് പറഞ്ഞു ക്ഷേത്ര ത്തിന്റെ പരിശുദ്ധിയും ചൈതന്യവും കാത്തു സൂക്ഷിക്കാൻ മറ്റാ രേക്കാളും ബാധൃത തന്ത്രിക്കുണ്ടെന്നും അദ്ദേഹം അഭിപ്രായ പ്പെട്ടു യാഥാർത്ഥ്യം അറിയാമായിരുന്നിട്ടും തന്ത്രി കുടുംബവും പന്തളം രാജകുടുംബവും ചിലരുടെ രാഷ്ട്രീയ അജണ്ടയ്ക്ക് നിന്നു കൊടുക്കുകയായിരുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി സുപ്രീംകോടതി വിധി അനുസരിക്കാൻ തന്ത്രിക്കും ബാധൃത യുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ശബരിമലയിലെ സ്ഥിതി വിശേഷം എത്രയും വേഗം സൂപ്രീംകോടതിയെ അറിയിക്കു മെന്ന് സമവായത്തിന്റെ പാത അടഞ്ഞിട്ടില്ലെന്നും ശങ്കരദാസ് വൃക്തമാക്കി റഹ്നാ ഫാത്തിമ സന്നിധാനത്ത് എത്തിയതിനു പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്ന് സംശയിക്കുന്നതായും ദേവസ്വം ബോർഡംഗം പറഞ്ഞു ശബരിമല വിഷയത്തിൽ ഗവൺമെന്റിന്റെ സമവായ ശ്രമത്തെ ബി ജെ പി പിന്തുണയ്ക്കുമെന്ന് പാർട്ടി സംസ്ഥാന പ്രസിഡണ്ട് പി എസ് ശ്രീധരൻ പിള്ള അറിയിച്ചു വിശ്വാസിക ളായ സ്ത്രീകളുടെ അഭിപ്രായം കൂടി സുപ്രീംകോടതിയെ അറി യിക്കാൻ ദേവസ്വം ബോർഡ് തയ്യാറാകണമെന്ന് അദ്ദേഹം പറ ഞ്ഞു പ്രതിസന്ധി പരിഹരിക്കാൻ സർവകക്ഷിയോഗം വിളിക്ക ണമെന്നും ശ്രീധരൻപിള്ള ആവശ്യപ്പെട്ടു ശബരിമല വിഷയ ത്തിൽ ഓർഡിനൻസ് ഇറക്കാൻ കേന്ദ്രത്തിന് അധികാരമി ല്ലെന്നും അദ്ദേഹം ആവർത്തിച്ചു ന്യൂനപക്ഷ സമുദായ അംഗത്തെ പ്രവേശിപ്പിച്ചതിനു പിന്നിൽ സിപിഐഎം പൊലീ സ് ഗൂഢാലോചനയുണ്ടെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി സമരം പാതിവഴിയിൽ ഉപേക്ഷിച്ച കോൺഗ്രസും രാഹുൽഗാ ന്ധിയും ശരിയായ സമീപനമല്ല ഇക്കാര്യത്തിൽ സ്വീകരിച്ച തെന്നും ശ്രീധരൻപിള്ള കുറ്റപ്പെടുത്തി ശബരിമലയിൽ കോടതിവിധി നടപ്പാക്കാനാണ് ഗവ ശ്രമമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃ ഷ്ണൻ അറിയിച്ചു വിശ്വാസികളെ ഇടതുപക്ഷത്തിന് എതിരാ ക്കാനാണ് ശ്രമമെന്നും അതാണ് ശബരിമല വിഷയത്തിൽ സംഭ വിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ശബരിമല വിഷയത്തിൽ രാഷ്ട്രീയക്കാർ പരാജയപ്പെട്ടിടത്ത് മാധ്യമങ്ങൾ വിജയിച്ചുവെന്ന് കെപിസിസി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു ശബരിമലയിലെ യഥാർത്ഥ വസ്തുതകൾ മാധ്യമങ്ങളാണ് ലോകത്തെ അറിയിച്ചത് ശബരിമല ടൂറിസ്റ്റ് കേന്ദ്രമല്ലെന്നും അവിടുത്തെ ആചാരങ്ങൾ നില നിൽക്കണമെന്നും അദ്ദേഹം മല പ്പു റത്ത് പറഞ്ഞു ശബരിമല പ്രവേശനത്തിന് ശ്രമിക്കുന്ന യുവതികളുടെ പശ്ചാത്തലം എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ലെന്ന് അദ്ദേഹം ചോദിച്ചു സ്ത്രീകളടക്കം പതിനായിരക്കണക്കിന് ഭക്തർ തെരുവിൽ പ്രതിഷേധിക്കുമ്പോൾ മുഖ്യമന്ത്രി വിദേശത്ത് പോയത് എന്തടിസ്ഥാനത്തിലാണെന്നും അദ്ദേഹം ചോദിച്ചു

സമചിത്തതോടെ പിണറായി വിജയൻ പെരുമാറണമെന്നും അദേഹം ആവശ്യപ്പെട്ടു ലഹരിക്കടിമയായ നിരവധി പേരെ ശബരിമലയിൽ ഇറക്കിയിട്ടുണ്ടെന്ന ഇ

ജയരാജന്റെ വാക്കുകൾ അതീവ ഗൌരവമർഹിക്കുന്നുവെന്നും മുല്ലപ്പള്ളി പറഞ്ഞു

ആചാരങ്ങൾ മാറിക്കൊണ്ടിരി ക്കുകയാണെന്നും അവർ കണ്ണൂരിൽ പറഞ്ഞു ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ സഹകരണത്തോടെ ഐ ആർ പി സി സംഘടി പ്പിച്ച വിവാഹ പൂർവ്വ കൌൺസിലിംഗ് ഉദ്ഘാടനം ചെയ്യുകയാ യിരുന്നു അവർ വിവാഹബന്ധങ്ങളിൽ വിള്ളലുണ്ടാവാതിരി ക്കാൻ ഇത്തരം കൌൺസിലിംഗ് ആവശ്യമാണെന്നും എം പി പറഞ്ഞു ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ വർഗീയ സംഘർഷം സൃഷ്ടിച്ചതിൽ ബി ജെ പി ക്കും സംസ്ഥാന ഗവൺമെന്റിനും തുല്യ പങ്കാണുള്ളതെന്ന് മുസ്ലീം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു മതസൌ ഹാർദ്ദം നിലനിർത്താനുള്ള പോരാട്ടത്തിലാണ് യു ഡി എഫ് എന്ന് അദ്ദേഹം മലപ്പുറത്ത് വൃക്തമാക്കി പരികർമികൾ ഇന്നലെ ശബരിമലയിൽ നടത്തിയ പ്രതി ഷേധം ക്ഷേത്രത്തിന് കളങ്കമുണ്ടാക്കിയിട്ടില്ലെന്ന് മാളികപ്പുറം മേൽശാന്തി അനീഷ് നമ്പൂതിരി പറഞ്ഞു ആചാരം ലംഘിച്ചാൽ നടയടക്കാൻ തന്ത്രിക്ക് അധികാരമുണ്ടെന്ന് അദ്ദേഹം സന്നിധാ നത്ത് അറിയിച്ചു ഇക്കാരൃത്തിൽ നടപടിയെടുക്കാൻ ആർക്കും അധികാരമില്ലെന്നും മാളികപ്പുറം മേൽശാന്തി പറഞ്ഞു ശബരിമലയിൽ ദർശനം നടത്തുന്നതിന് സംരക്ഷണം ആവ ശ്യപ്പെട്ട് സ്ത്രീകളാരും ഇന്ന് സമീപിച്ചിട്ടില്ലെന്ന് പത്തനംതിട്ട ജില്ലാ കലക്ടർ പി ബി നൂഹ് അറിയിച്ചു ആരെങ്കിലും സമീപി ച്ചാൽ പരിശോധിച്ച് തീരുമാനമെടുക്കുമെന്ന് അദ്ദേഹം പത്തനം തിട്ടയിൽ പറഞ്ഞു പാതയിരട്ടിപ്പിക്കൽ പൂർത്തിയാക്കാതെ കേരളത്തിന് പുതിയ ട്രെയിനുകൾ ആവശൃപ്പെടാനാവില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി അൽഫോൻസ് കണ്ണന്താനം അറിയിച്ചു കൊച്ചുവേളിയിൽ നിന്ന് ബെങ്കലൂരുവിലെ ബാനസവാടിയി ലേക്ക് ഹംസഫർ എക്സ്പ്രസ് സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്യുക യായിരുന്നു അദ്ദേഹം മന്ത്രിമാരായ കടകംപള്ളി സുരേന്ദ്രനും ജി സുധാകരനും ജനപ്രതിനിധികളും ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ പങ്കെടുത്തു തേർഡ് എസി കോച്ചുകൾ മാത്രമാണ് ഹംസഫർ എക്സ്പ്രസിൽ ഉള്ളത് ആഴ്ച്ചയിൽ രണ്ട് ദിവസമാണ് സർവ്വീസ് ഇന്ധനവില ഇന്നും കുറഞ്ഞു

തുടർച്ചയായി മൂന്നാം ദിവസമാണ് ഇന്ധനവില കുറയുന്നത് രണ്ടാം ഹോംമാച്ചിൽ കൊച്ചിയിൽ ഐഎസ് എൽ ഫുട്ബോളിൽ ഇന്ന് കേരളാ ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഡൽഹി ഡൈനാ മോസിനെ നേരിടും വൈകീട്ട് ഏഴരക്ക് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം ആദ്യ ഹോംമാച്ചിൽ മുംബൈക്കെതിരെ കേരളാ ബ്ലാസ്റ്റേഴ്സ് മത്സരം സമനിലയിൽ കലാശിച്ചിരുന്നു ഈ സീസണിലെ ആദ്യ മത്സരത്തിൽ കോൽക്കത്തയെ വീഴ്ത്തിയായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ തുടക്കം

മൈതാനം പുല്ലുവെട്ടിയൊതുക്കിയും സ്റ്റേഡിയം ചായം പൂശിയും കളിക്കാരെയും കാഴ്ചക്കാരെയും സ്വീകരിക്കാൻ ഒരു ങ്ങിക്കഴിഞ്ഞു ിഗ്രോകുലം എഫ് സിയുടെ ജഴ്സി പ്രകാശനം ഇന്ന് വൈകീട്ട് കടപ്പുറത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ അറി യിച്ചു അടുത്ത് ശനിയാഴ്ചയാണ് ഗോകുലം എഫ് സി യും കൊൽക്കത്ത മോഹൻബഗാനുമായി മത്സരം ജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് കോഴിക്കോട് മെഡിക്കൽ കോളെജ് ഒളിമ്പ്യൻ റഹ്മാൻ സ്റ്റേഡിയത്തിൽ നാളെ തുടക്കമാ കും

സംസ്ഥാന ജൂനിയർ ഹോക്കി ടൂർണമെന്റ് സെമി ഫൈനൽ മത്സരങ്ങൾ കോഴിക്കോട്ട് ഇന്ന് നടക്കും കോഴിക്കോടും മലപ്പു റവുമാണ് സെമിയിലുള്ളത്

കാലവർഷ ത്തിൽ കൂടുതൽ ദുരിതങ്ങൾ നേരിടേണ്ടി വന്ന ജില്ലയിലെ ഒമ്പത് പഞ്ചായത്തുകളിലും മാനന്തവാടി നഗരസഭാ പരിധിയിലുമാണ് സംസ്ഥാന ജൈവ വൈവിധ്യ ബ്വോർഡിന്റെ നേതൃത്വത്തിൽ പഠനം നടത്തുന്നത്